ത അന്തരിച്ച കേന്ദ്രമന്ത്രി രാംവിലാസ് പസ്വാന്റെ ഭൌതിക ദേഹം ഉച്ചകഴിഞ്ഞ് പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ ബീഹാറിൽ സംസ്കരിക്കും

എൽ ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസിന് ഉജ്ജ്വല ജയം

നിലവിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ആഗോള സഹകരണം ആവശ്യമാണെന്നും അതിന് നേതൃത്വം നൽകാൻ ചേരിചേരാ പ്രസ്ഥാനത്തിന് കഴിയുമെന്നും മുരളീധരൻ പറഞ്ഞു കോവിഡ് മഹാമാരിക്കെതിരെ യോജിച്ച പോരാട്ടത്തിന് അദ്ദേഹം ആഹ്വാനം ചെയ്തു

ഒരു മാസത്തിന് ശേഷം കോവിഡ് സജീവ കേസുകളുടെ എണ്ണം വീണ്ടും ഒമ്പതു ലക്ഷത്തിൽ താഴെയായി തുടർച്ചയായി മൂന്നാമത്തെ ആഴ്ചയും രോഗമുക്തരാവുന്നവർ പുതുതായി രോഗം ബാധിക്കുന്നവരേക്കാൾ കൂടുതലാണ്

രോഗം സ്ഥിരീകരിക്കുന്നവരുടെ എണ്ണത്തിലെ കുറവാണ് ഇത് കാണിക്കുന്നത് രുര സംസ്ഥാനത്ത് ആശങ്കയുയർത്തി കോവിഡ് രോഗികളുടെ എണ്ണം വീണ്ടും വർധിച്ചു

വിശദാംശങ്ങളുമായി ഹബീബ് റഹ്മാൻ വോയ്സ് രംഭ കോഴിക്കോട് ജില്ലയിൽ കോവിഡ് വ്യാപനം അതിരൂക്ഷമാവുകയാണ്

ന്യൂസ് ഡെസ്ക് ആകാശവാണി രുര പച്ചക്കറി മാർക്കറ്റിലെ തൊഴിലാളിക്ക് കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ആലുവ മാർക്കറ്റ് ഇന്നു മുതൽ മൂന്ന് ദിവസത്തേക്ക് അടച്ചിടും രും ജീവനക്കാർക്കിടയിൽ കോവിഡ് വ്യാപനം സ്ഥിരീകരിച്ചതിനെത്തുടർന്ന് കോട്ടയം ഹെഡ് പോസ്റ്റ് ഓഫീസിനെ ജില്ലാ കലക്ടർ എം അഞ്ജന ഇൻസ്റ്റിറ്റ്യൂഷണൽ കോവിഡ് ക്ലസ്റ്ററായി പ്രഖ്യാപിച്ചു

ആദ്യമായാണ് ഇത്രയും പേർക്ക് ഒരു ദിവസം കോവിഡ് സ്ഥിരീകരിക്കുന്നത് ഇതിൽ ഒരു ലക്ഷത്തി പതിനായിരത്തോളം കേസുകൾ യൂറോപ്പിൽ നിന്നാണ്

കോവിഡ് മഹാമാരി എല്ലാ മേഖലകളിലും വെല്ലുവിളി സൃഷ്ടിക്കുന്ന സാഹചര്യത്തിൽ മാനസികാരോഗ്യത്തിന് വലിയ പ്രാധാന്യമുണ്ട് രും കോവിഡ് മേഖലകളിലും വെല്ലുവിളിയാകുമ്പോൾ മാനസികാരോഗ്യത്തിന് വലിയ പ്രാധാന്യം നൽകണമെന്ന് മന്ത്രി കെ

എല്ലാവർക്കും പൂർണ മാനസികാരോഗ്യം ഉറപ്പുവരുത്താൻ കോവിഡിന്റെ ആരംഭം മുതൽ തന്നെ ആരോഗ്യ വകുപ്പ് വലിയ പ്രാധാന്യമാണ് നൽകിയത്

രും കോവിഡ് സൃഷ്ടിക്കുന്ന മാനസികാരോഗ്യ വെല്ലുവിളികളെയും സ്വീകരിക്കേണ്ട മുൻകരുതലുകളെയും കുറിച്ച് ഇന്ത്യൻ സൈക്യാട്രിക് സൊസൈറ്റി കേരള ഘടകം പ്രസിഡന്റും കോഴിക്കോട് മെഡിക്കൽ കോളജ് സെക്യാട്രി വിഭാഗം പ്രൊഫസറുമായ ഡോ ഹാരിഷ് എം

ബിഹാറിലെ ദിഘാഘട്ടിൽ ഗംഗാതീരത്താണ് സംസ്കാരം ഇന്നലെ രാത്രി വ്യോമ സേനയുടെ പ്രത്യേക വിമാനത്തിൽ പട്നയിലെത്തിച്ച പസ്വാന്റെ ഭൌതികദേഹം നിയമസഭാ മന്ദിരത്തിൽ പൊതുദർശനത്തിന് വെച്ചു

തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഹരിത കേരള മിഷൻ ശുചിത്വ മിഷൻ ക്ലീൻ കേരള കമ്പനി കുടുംബശ്രീ തൊഴിലുറപ്പ് മിഷൻ എന്നിവ സംയുക്തമായി ആവിഷ്കരിച്ച നടപടിക്രമങ്ങളിലൂടെയാണ് ഖരമാലിന്യ സംസ്കരണത്തിൽ മികവു തെളിയിച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ശുചിത്വ പദവിക്കായി തിരഞ്ഞെടുത്തത് ശുചിത്വ മാലിന്യ സംസ്കരണ രംഗത്തെ സകല ഘടകങ്ങളും പ്രാവർത്തികമാക്കുമ്പോൾ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സമ്പൂർണ്ണ ശുചിത്വ പദവി നൽകും

വിവിധ വകുപ്പുകളുടെ മുന്നൊരുക്കങ്ങളും യോഗം വിലയിരുത്തി

കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് മാത്രമായിരിക്കും പ്രവേശനം

എൽ ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസിന് ഉജ്ജ്വല ജയം

ഇന്ന് രണ്ടു മത്സരങ്ങൾ ഉണ്ട് ആദ്യ മാച്ചിൽ കിങ്സ് ഇലവൻ പഞ്ചാബ് അബൂദബിയിൽ കൊൽക്കത്ത നൈറ്റ് റൈഡൈഴ്സിനെയും രണ്ടാം മത്സരത്തിൽ ദുബായിൽ ചെന്നൈ സൂപ്പർ കിങ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗൂളൂരുവിനേയും നേരിടും രുര മുൻ കേരളാ രഞ്ജി ക്രിക്കറ്റ് താരം സുരേഷ്കുമാർ അന്തരിച്ചു

ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച ശേഷം റെയിൽവേയിൽ ജോലി ചെയ്തു വരികയായിരുന്നു

സംസ്കാരം രാവിലെ വീട്ടുവളപ്പിൽ നടക്കും രുര തിരൂർ കൂട്ടായിയിൽ വാക്കു തർക്കത്തിനിടെ ഒരാൾ വെട്ടേറ്റു മരിച്ചു

രുര മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം

രുര പുതിയ രാഷ്ട്രീയ നിലപാട് എടുത്തതിന്റെ പേരിൽ സമൂഹമാധ്യമങ്ങളിൽ വല്ലാതെ വേട്ടയാടപ്പെടുന്ന ഒരു പൊതു പ്രവർത്തകനാണ് താനെന്ന് ബി ജെ

ദേശീയ ഉപാധ്യക്ഷൻ എ

ഇക്കാര്യത്തിൽ പലതവണ പൊലീസിന് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ലെന്നും അദ്ദേഹം കണ്ണൂരിൽ അറിയിച്ചു

കണ്ണൂർവയനാട് കോഴിക്കോട് മലപ്പുറം ഇടുക്കി ജില്ലകളിലാണ് യെല്ലോ അലർട്ട് ബംഗാൾ ഉൾക്കടലിൽ ആൻഡമാൻ തീരത്തിന് സമീപം ന്യൂനമർദ്ദം രൂപപ്പെട്ടതിനാലാണിത് രുഭ പുതിയ കാർഷിക നിയമം സുഗന്ധവിളകളെ സഹായിക്കുമെന്ന് കോഴിക്കോട് ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രത്തിൽ സംഘടിപ്പിച്ച വെബിനാർ അഭിപ്രായപ്പെട്ടു

ആർ ആരതി വിലയിരുത്തി